അടിസ്ഥാനസൌകര്യ വികസനം സ്പുപ്രിധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

ന് ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷാവസ്ഥ ലഘൂകരിക്കാൻ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഇന്തൃയുടെ ആത്മാഭിമാനത്തെ മുറിവേൽപിക്കുന്ന ഒരു കാര്യവും അംഗീകരിക്കില്ലെന്നും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിങ്

ഘോഷയാത്ര ഇത്തവണ ഒഴിവാക്കിയ സാഹചരൃത്തിൽ നാളെ മഹാസമാധിക്ക് മുന്നിൽ ലോകമംഗളത്തിനായി പ്രാർത്ഥന നടത്തും

കർഷകരും കേന്ദ്രവും തമ്മിലുള്ള ആറാം വട്ട ചർച്ചയാണിത്

പാർലമെന്റ് പാസ്സാക്കിയ മൂന്ന് കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കർഷകർ സമരം നടത്തുന്നത്

കർഷകർ ഉന്നയിക്കുന്ന പ്രസക്തമായ എല്ലാ വിഷയങ്ങളും തുറന്ന മനസ്റ്റോടെ ചർച്ച ചെയ്യാനും യുക്തിസഹമായപരിഹാരം കണ്ടെത്താനും പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രം ആവർത്തിച്ചു

കർഷകരെയും കാർഷിക മേഖലയെയും ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

നിലവിലുള്ള കുറഞ്ഞ താങ്ങ് വില നിരക്കിൽ ഖാരിഫ് വിളകൾ സംഭരിക്കുന്നത് സർക്കാർ തുടരുകയാണ്

ഉത്തർപ്രദേശിൽ ന്യൂ ഭൌപൂർ മുതൽ ന്യൂ ഖുർജ വരെയുള്ള പ്രത്യേക ചരക്ക് ഇടനാഴി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി വൻ സാമ്പത്തിക ശക്തിയാകാൻ ശ്രമിക്കുന്ന രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ മുൻഗണന മികച്ച ബന്ധനക്ഷമത കൈവരിക്കുക എന്നതാണ് സ്വയംപര്യാപ്ത ഇന്ത്യ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ ബന്ധനക്ഷമതയും അടിസ്ഥാനസൌകരൃങ്ങളും സുപ്രധാനമാണെന്ന് പറഞ്ഞ ശ്രീ മോദി കഴിഞ്ഞ ആറ് വർഷമായി സർക്കാർ അതിനായി പ്രവർത്തിക്കുകയാണെന്നും വ്യക്തമാക്കി

ഈ മാസം ആദ്യവും ഓൺലൈൻ ആയി ചർച്ചകൾ നടന്നു

ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ മുറിവേൽപിക്കുന്ന ഒരു കാര്യവും ഇന്ത്യ വെച്ചുപൊറുപ്പിക്കില്ലെന്നും രാജ്നാഥ് സിങ് പറഞ്ഞു

അഭ്യാസത്തിൽ ഫ്രഞ്ച് വ്യോമസേനയും പങ്കാളികളാകും സ്കൈറോസ് എന്ന് പേരിട്ടിരിക്കുന്ന അഭ്യാസ പരിപാടി ജനുവരി മൂന്നാമത്തെ ആഴ്ചയാണ് അരങ്ങേറുക ഇന്ത്യ സ്വന്തമാക്കിയ റാഫേൽ യുദ്ധവിമാനങ്ങൾ പങ്കെടുക്കുന്ന രാജ്യത്തെ ആദ്യ വ്യോമാഭ്യാസമായിരിക്കും സ്കൈറോസ്

അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ എത്രയും വേഗം റിട്ടേൺ സമർപ്പിക്കാൻ ആദായനികുതി വകുപ്പ് അഭ്യർത്ഥിച്ചു

സമുദ്രങ്ങൾ അനന്തമായ അറിവിന്റെ ഒരു ശേഖരമാണെന്നും ആ അറിവുകൾ ലോകത്തിന് പങ്കുവെക്കാൻ ആപ്പ് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ബ്രിട്ടണിലും ദ്രക്ഷിണാഫ്രിക്കയിലും കണ്ടെത്തിയ പുതിയ ഘടനയുള്ള കൊറോണ വൈറസിനെതിരെ വാക്സിൻ പ്രവർത്തിക്കില്ലെന്നതിന് ഇതുവരെ തെളിവുകൾ ഒന്നും ലഭിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് കെ വിജയരാഘവൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു

വാക്സിൻ സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനമുള്ള കേന്ദ്രങ്ങളെയാണ് ശൃംഖലയിലുൾപ്പെടുത്തുന്നത്

ശ്രീ നാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദയുടെ നേതൃത്വത്തിൽ മഠത്തിൽ സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും വൈദികരും അന്തേവാസികളും പ്രാർത്ഥനയിൽ പങ്കെടുക്കും എല്ലാ ഗുരുദേവ വിശ്വാസികളും ഈ സമയത്തു ശിവഗിരി ടി വി യിലൂടെ ലൈവായി പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്ന് ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി സാന്ദ്രാനന്ദ അഭ്യർത്ഥിച്ചു ഈ സമയം സ്വാമി വിശുദ്ധാനന്ദ തീർത്ഥാടന സന്ദേശവും നൽകും

പള്ളിത്തർക്കത്തിൽ പ്രശ്നപരിഹാരത്തിന്റ് എല്ലാ ശ്രമങ്ങളും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതായി യാക്ക്കാബായ പ്രതിനിധികൾ അറിയിച്ചു പ്രധാനമന്ത്രിയുമായി നടിത്തിയ കൂടിക്കാഴ്ചയ്ക്കു ശേഷം ഇരു സഭകളുടെയും പ്രതിനിധികൾ മിസോറം ഗവർണ്ണർക്കൊപ്പം മിസോറം ഭവനിൽ ഒരുമിച്ച് ഇരുന്നത് പ്രശ്നപരിഹാരത്തിനും തുടർ ചർച്ചകൾക്കുമുള്ള സാദ്ധ്യൃത്കൾ വർധിച്ചിട്ടുണ്ട്

ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലെ അദ്ധ്യക്ഷ സ്ഥാനത്തേക്ക് രാവിലെയും ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് ഉച്ചകഴിഞ്ഞുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്